ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി

ഭീകരതയും അഴിമതിയും രാജ്യത്ത് നിന്ന് തുടച്ചു മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ച് വൻ റാലി

ജമ്മുകശ്മീരിലെ വിഘടനവാദി നേതാവ് യാസിൻ മാലിക്കിനെ അറസ്റ്റു ചെയ്തു

ഇന്നലെ നക്സൽ ആക്രമണമുണ്ടായ ഛത്തീസ്ഗറിലെ ദന്തെവാഡ മേഖലയിൽ തെരഞ്ഞെടുപ്പ് നിശ്ചിത സമയ ക്രമത്തിൽ നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃക്തമാക്കി

എന്നാൽ ഇടതു തീവ്രവാദം ശക്തമായു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സമയക്രമത്തിൽ ഏറ്റ്യാ്സം വരുത്തിയിട്ടുണ്ട് ഉത്തരാഖണ്ഡിൽ രാവിലെ ഏഴിന് ആരംഭിച്ച് വൈകിട്ട് അഞ്ചുമണിക്ക് വോട്ടെടുപ്പ് അരുണാചൽ പ്രദേശ് മീന്റ്റോറം സിക്കിം ത്രിപുര വെസ്റ്റ് എന്നിവിടങ്ങളിലും ക്ലൈകിട്ട് അഞ്ച് മണിക്ക് വോട്ടെടുപ്പ് അവസാനിക്കും മേഘാലയ എന്നിവിടങ്ങളിൽ രാവിലെ ഏഴിന് തുടങ്ങി വൈകിട്ട് നാല് മണിക്ക് വോട്ടെടുപ്പ് അവസാനിക്കും

ബെഗുരായിയിൽ സിപിഐ സ്ഥാനാർത്ഥിയായി കനയ്യകുമാർ പത്രിക നൽകി

ദക്ഷിണ ഗുജറാത്തിലെ സോംഗധിൽ ബിജെപി തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാൻ ഭീകരതെ അതിർത്തി കടത്തി വിടുകയാണെന്ന് ശ്രീ

രാജ്യത്തിന്റെ നല്ലഭാവിക്കു വേണ്ടി ചെറുപ്പക്കാരും കന്നിവോട്ടർമാരും തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകണമെന്ന് ശ്രീ

അതിനിടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് മാവ്ജിഭായ് ശ്രീ നരേന്ദ്രമോദിയുടെ സാന്നിദ്ധ്യത്തിൽ ബിജെപിയിൽ ചേർന്നു

ശ്രീമതി സോണിയാ ഗാന്ധി പിങ്ർട്ടി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഭർത്താവ് റോബർട്ട് വാദ്ര എന്നിവരും ഒപ്പമുണ്ടായിരുന്നു പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് ശ്രീ രാഹുൽ റോഡ്ഷോയും നടത്തി

ഇത്തരം സൃഷ്ടികൾ സ്വാധീനിക്കാൻ പ്രചാരണവേളയിൽ തെരഞ്ഞെടുപ്പിനെ ഇടയുള്ളതായതായും ചലച്ചിത്രമായോ മറ്റ് ഇലക്ട്രോണിക് മീഡിയ വഴിയോ അവ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രദർശിപ്പിക്കാൻ പാടില്ലെന്നും കമ്മീഷന്റെ നിർദ്ദേശത്തിൽ പറയുന്നു ചലച്ചിത്രം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്നും അതിന്റെ പ്രദർശനം തടയണമെന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു

യ്ക്കും ഇത് ബാധകമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നു

ഐ

ഫെബ്രുവരി മുതൽ ിജ്മ്മുവിലെ കോട്ട് ബൽവാൽ ജയിലിൽ കരുതൽ തടങ്കലിലായിരുന്നു യാസിൻ മാലിക് ഭീകര പ്രവർത്തനത്തിന് പണം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് മാലിക്കിനെ അറസ്റ്റു ചെയ്തത് പ്രത്യേക കോടതി ജഡ്ജി മുമ്പാകെ ഹാജരാക്കിയ മാലിക്കിനെ കോടതി മുറിക്കുള്ളിൽ വച്ചാണ് എൻ ഐ

സവിശേഷ പരിഗണനയുള്ള സുപ്രധാന രേഖകൾ അനധികൃത ഹർജിക്കാർ സ്വന്തമാക്കിയതെന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടിയെങ്കിലും പുറത്തു വന്ന പുതിയ തെളിവുകൾ പരിശോധിക്കാമെന്നും കോടതി വ്യക്തമാക്കി ഫ്രാൻസിൽ നിന്നും റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള ഇടപാടുരേഖകൾക്ക് സവിശേഷ പരിഗണനയില്ലെന്ന് കോടതി വൃക്തമാക്കി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസുമാരായ എസ്

കൌൾ കെ

രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന ക്ടാര്യങ്ങളിൽ അവ്യക്തത നിറക്കുന്ന അപൂർണ്ണ വിപ്പ്ർങ്ങളാണ് പരാതിക്കാർ വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് പ്രകൃത്തി പ്രതിരോധമന്ത്രാലയം കുറ്റപ്പെടുത്തി അതേസമയം ഗ്രവണ്മെന്റ് സ്വയം പ്രഖ്യാപിച്ച ക്ലീൻ ചിറ്റ് സുപ്രീംകോടതി കൃത്ത്സാധുവാക്കിയതായി കോൺഗ്രസ് പ്രതികരിച്ചു

റഫേൽ ഇടപാടിനെകുറിച്ചുള്ള അന്തിമ വിധിയല്ല സുപ്രീംകോടതി നല്കിയത് പുനഃപരിശോധന നടത്താൻ അനുവദിച്ചതിനെ അന്തിമ വിധിയായി വിശേഷിപ്പിക്കുന്നത് കോടതിയലക്ഷ്യമാണെന്ന് പ്രതിരോധമന്ത്രി പറഞ്ഞു രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് ശ്രീ രാഹുൽഗാന്ധി നടത്തിയതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി

സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ഇന്ത്യാക്കാർക്കാണ് സംഭവത്തിൽ ജീവൻ നഷ്ടമായത്

മാണിക്ക് രാഷ്ട്രീയ കേരളത്തിന്റെ ആദരാഞ്ജലി

മാണിയുടെ ഭൌതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അൽപസമയത്തിനകം കോട്ടയത്ത് എത്തിച്ചേരും ഉച്ചയ്ക്ക് മണിയോടെ കോട്ടയത്ത് എത്തേണ്ടിയിരുന്ന വിലാപയാത്ര വഴിയിൽ ആദരവ് അർപ്പിക്കാനെത്തിയവരുടെ ബാഹുല്യത്താൽ മണിക്കൂറുകൾ വൈകിയാണ് നീങ്ങുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്തുരുത്തിയിലെത്തി കെ

നാളെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പാലാ കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ പൂർണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കും